രാജ്യത്തെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ നിയമ സഹായം ലഭ്യമാക്കാൻ അഭിഭാഷകർ തയ്യാറാകണമെന്ന് രാഷ്ട്രപതി രാംനാഥ്കോവിന്ദ്

നാല് ബി ജെ

കർണ്ണാടകയിൽ തിങ്കളാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ പാർട്ടി ആവശ്യപ്പെടുമെന്ന് ബി ജെ പി സംസ്ഥാന അദ്ധ്യക്ഷൻ ബി

വിംബിൾഡൺ ടെന്നീസ് വനിതകളുടെ സിംഗിൾസ് ഫൈനലിൽ സെറീന വില്യംസ് സിമോണ ഹാലപ്പ് പോരാട്ടം തുടരുന്നു

തമിഴ്നാട് ഡോ അംബേദ്കർ നിയമ സർവ്വകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി നിയമവാഴ്ച ഉറപ്പു വരുത്താൻ ന്യായാധിപൻമാരും അഭിഭാഷകരും കോടതി ജീവനക്കാരും ശ്രമിക്കണം രാജ്യത്തെ നിയമ മേഖലയിൽ വൻ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും മുമ്പത്തിനേക്കാളും നിയമ വിദ്യാർത്ഥികൾക്ക് അവസരം കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു ഉയർന്ന കോടതികളിലെ ന്യായവിധികൾ കക്ഷികളുടെ ഭാഷയിൽ വേണമെന്നും രാഷ്ട്രപതി ആവശ്യപ്പെട്ടു നിയമരംഗത്ത് നൽകിയ സംഭാവനകൾ മുൻനിർത്തി കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന് ഓണററി ഡോക്ടറേറ്റ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിച്ചു

എൽ എ

ഡി എസ് എം

എൽ

ഇന്നലെ എം

കഴിഞ്ഞ ദിവസം രാത്രിയാണ് എം എൽ എ മാർ സ്പീക്കർ കെ ആർ രമേഷ് കുമാറിനെ സന്ദർശിച്ചശേഷം മുംബൈയിലെ ഹോട്ടലിൽ എത്തിയത്

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

അടുത്തിടെ യുദ്ധമുഖങ്ങളിൽ വസ്കുമാറ്റ്ങ്ങൾക്കനുസരിച്ച് ഭാവിയിലെ യുദ്ധങ്ങൾക്കായി ്ഇന്ത്യൻ സേന തയ്യാറാകേണ്ടതുണ്ടെന്നും ശ്രീ കാവത്ത് പറഞ്ഞു ഇന്റർനെറ്റും ബഹിരാകാശമേഖലയൂറ്ട് യുദ്ധഭൂമിയുടെ സ്വഭാവം തന്നെ മാറ്റിയിരിക്കുന്നതായും ക്രസേനാമേധാവി പറഞ്ഞു ഭാവിയിലെ സംഘർഷങ്ങൾ കൂടുതൽ തീഷ്ണവും പ്രവചനാതീതവുമായതിനാൽ സൈന്യത്തിന്റെ നയതന്ത്രവും പ്രതികരണവും മെച്ചമായി ആസൂത്രണം ചെയ്തതും സമന്വയിപ്പിച്ചതുമായിരിക്കണമെന്നും ശ്രീ ബിപിൻ റാവത്ത് പറഞ്ഞു നിയന്ത്രണ രേഖ മറികടന്ന് ചൈനീസ് സൈന്യം ഇന്ത്യയിലേക്ക് കടന്നു കയറിയെന്ന വാർത്തകൾ കരസേനാ മേധാവി നിഷേധിച്ചു

ചർച്ചയിൽ ഇടനാഴി സംബന്ധിച്ച വിവിധ നടപടിക്രമങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും വിഷയമാകും സീറോ പോയിന്റിലെ സംയോജനം സംബന്ധിച്ചും തീർത്ഥാടകരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചും വിശദമായി ചർച്ച ചെയ്യുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു യാത്രക്കാർക്കുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അവർ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

ചിലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി വയറുകൾ പൊട്ടുകയും വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്

അസമിൽ ബ്രഹ്മപുത്ര ഉൾപ്പെടെ കരകവിഞ്ഞൊഴുകിയ നദികൾ റോഡുകളും കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലാക്കി

ദേശീയ പാർക്കുകളും വന്യമൃഗ സങ്കേതങ്ങളും വെള്ളത്തിനടിയിലായി അരുണാചൽ പ്രദേശിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഗതാഗതത്തെ ബ്ലിധ്രീച്ചു രണ്ടുപേർ മരിക്കുകയും രണ്ടുപേരെ ഒഴൂക്കീൽപെട്ട് കാണാതാവുകയും ചെയ്തിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ കഴ്ചൂഞ്ഞ് കുറച്ചു ദിവസങ്ങളായി തുടരുന്ന മഴയിൽ അലിപൂർദാർ ജൽപായ്ഗുരി ജില്ലകളിലെ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ടീസ്റ്റ കരാള ജൽധക എന്നീ നദികളും അവയുടെ പോഷക നദികളും കരകവിഞ്ഞൊഴുകുകയാണ് മണ്ണിടിച്ചിൽകാരണം സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗ് കുന്നുകളിലേക്കും സിക്കിമിലേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു

തരായ് മേഖലയാണ് ഏറ്റവുമധികം ബാധിക്കപ്പെട്ടത്

ആർ ഒയുടെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും ചന്ദ്രയാൻ കുതിച്ചുയരും

ഊർജ്ജസ്വലമായ ചരക്ക് കമ്പോളം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അതുവഴി അടിസ്ഥാന സൌകര്യ വികസനത്തിനു ആക്കം കൂട്ടുമെന്നും ധനകാരൃ സഹമന്ത്രി പറഞ്ഞു

സൂര്യപ്രകാശ് ലണ്ടനിൽ മാധ്യമങ്ങളും മതവും എന്ന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ സ്വതന്ത്രവും ഉത്തരവാദിത്വവുമുള്ള മാധ്യമമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു

നാളെ നടക്കുന്ന പുരുഷന്മാരുട്ടെ സിംഗിൾസ് ഫൈനലിൽ എട്ട് തവണ ചാമ്പ്യനായ റ്ടോജർ ഫെഡറർ നൊവാക് ജോക്കോവിച്ചിനെ നേരിടും പുരുഷന്മാരുടെയും വനിതകളുടെയും ഡബിൾസ് ഫൈനലും ഇന്ന് നടക്കും

ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്

ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല

ഇതിൽ പ്രമുഖ സൊമാലിയൻ രാഷ്ട്രീയ പ്രവർത്തകരും നിരവധി വിദേശികളും ഉൾപ്പെടുന്നു

കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ സൊമാലി കനേഡിയൻ മാധ്യമപ്രവർത്തക ഹൊദാൻ നലായെ ഉൾപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു അവരുടെ ഭൂർത്തിട്ടും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഉടനെ നടക്കാനിരിക്കുന്നി പ്രാ്ദേശിക തെരെഞ്ഞെടുപ്പിനെക്കുറിച്ച് ചർച്ച് ചെയ്യാനായി ഹോട്ടലിൽ ഒന്നിച്ചു കൂടിയവർക്കു നേക്കൂയാണ് ആക്രമണം നടന്നത് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുട് കൊല്ലപ്പെട്ടു